ചരക്കു സേവന നികുതി കണക്കൂക്ൾ സമർപ്പിക്കാൻ വൈകിയവർക്ക് പിഴയിലും പ്ലിശ്ചിയിലും ജി എസ്

സ്വകാരൃ ബാങ്കുകളുടെ ഉടമസ്ഥത നടത്തിപ്പ് ഘടന എന്നിവ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ അവലോകനം ചെയ്യാൻ റിസർവ് ബാങ്ക് അഞ്ചംഗ കർമസമിതിയെ നിയോഗിച്ചു

നാലാം ഘട്ട ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു

എസ്

കൌൺസിൽ ഇളവ് പ്രഖ്യാപിച്ചു

ഇ റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്തംബർ അവസാനം വരെ നീട്ടിയിട്ടുണ്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടന്ന നാല്പതാം ജി

കൌൺസിൽ യോഗത്തിലാണ് കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമൻ ഇക്കാരൃം അറിയിച്ചത്

ഇ റിട്ടേൺ സമർപ്പിക്കാൻ വൈകിയവർക്ക് പരമാവധി പിഴ അഞ്ഞൂറ് രൂപയായി കുറച്ചു ജൂലൈ ഒന്നു മുതൽ ആനുകൂല്യം ലഭിക്കും

ബി ഐ സെൻട്രൽ ബോർഡ് ഡയറക്ടർ പി

വൃക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ബാങ്കിംഗ് ലൈസൻസിന് അപേക്ഷിക്കാനുള്ള യോഗൃതാ മാനദണ്ഡങ്ങളും സമിതി പരിശോധിക്കും

ഇന്ത്യയുടെ സമ്പന്നമായ ഭാഷാ വൈവിധ്യത്തെ അവഗണിച്ച് ബാങ്കിംഗ് മേഖലയ്ക്ക് മുന്നോട്ട് പോകാനാവില്ലെന്നും അദ്ദേഹം ഓർമിപ്പിച്ചു മുംബൈയിൽ സി ഐ

സംഘടിപ്പിച്ച വെർച്ചൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പ്രതിദിനം നൂറു കോടി ഡിജിറ്റൽ ഇടപാടാണ് രാജ്യം പ്ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

അടുത്ത ബന്ധുക്കളുടെ മരണം ഉൾപ്പെടെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കായാണ് ഇന്ത്യയിലേക്കുള്ള മടങ്ങിവരവ് അനുവദിക്കുന്നത് ഒ സി ഐ കാർഡുള്ള ദമ്പതികൾക്കും വിദ്യാർത്ഥികൾക്കും നിബന്ധനകളോടെ യാത്ര അനുവദിക്കും

വീഡിയോ കോൺഫറൻസിംഗ് വഴി നടന്ന ചർച്ചയിൽ കൊറോണ വൈറസ് വ്യാപനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആശയ വിനിമയം നടന്നു

ആരോഗ്യം വാക്സിൻ നിർമാണം സമുദ്ര മേഖലയിലെ സഹകരണം അഫ്ഗാനിസ്ഥാൻ വിഷയം എന്നിവയാണ് പ്രധാനമായും ചർച്ചയിൽ വന്നത്

കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാരെ രാജ്യത്തെത്തിക്കാൻ ടാൻസാനിയ അധികൃതർ നൽകിയ സഹായത്തിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു

വികസനകാര്യങ്ങളിലെ വർദ്ധിച്ച പങ്കാളിത്തം വിദ്യാഭ്യാസ ബന്ധങ്ങൾ വ്യാപാര നിക്ഷേപങ്ങൾ എന്നിവയിൽ സംതൃപ്തി പ്രകടിപ്പിച്ച നേതാക്കൾ ബന്ധം കൂടുതൽ ത്വരിതപ്പെടുത്താനുള്ള സാധ്യതകൾ ചർച്ചു ചെയ്തു

കഴിഞ്ഞ ആറായിരത്തിലധികം പേർ സുഖം പ്രാപിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

രാജ്യത്ത് ആകെ രോഗികളുടെ എണ്ണം മൂന്ന് ലക്ഷം കടന്നതായാണ് റിപ്പോർട്ട് അതിനിടെ കോവിഡ് സ്ഥിതിഗതി വിലയിരുത്താനായി ക്യാബിനറ്റ് സെക്രട്ടറി എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറി ആരോഗൃ സെക്രട്ടറി നഗര വികസന സെക്രട്ടറി എന്നിവരുമായി ചർച്ച നടത്തി കണ്ടെയ്ൻമെന്റ് മേഖലകളിലെ പരിശോധന്ന ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൌകര്യം എന്നിവ പ്രിവർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നിർദ്ദേശം ന്ൽകി

ഡൽഹിയിലെ കോവിഡ് വ്യാപനം മുൻനിർത്തിയാണ് നടപടി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഡൽഹിയിലെ ആരോഗൃ അടിസ്ഥാന സൌകരൃ വികസനങ്ങൾക്കും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സമിതി നൽകും

സ്്സ്ഥാനത്തു നിന്നുള്ള രണ്ട് ലോക്സഭാ സീറ്റിലും ബി ജെ

മൂന്ന് എം പി മാരും ഒരേ പാർട്ടിയിൽ നിന്നാകുന്ന ചരിത്ര നിമിഷമാണിതെന്ന് മുഖ്യമന്ത്രി പേമ ഖണ്ഡു പറഞ്ഞു

എസ്

പരീക്ഷാ നടത്തിപ്പിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമില്ലെന്നും ഐ

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തടസ്സങ്ങളുള്ള വിദ്യാർത്ഥികൾക്കായി സെപ്തംബറിൽ പുനഃപരീക്ഷ നടത്തും